നവ ഇന്തൃയ്ക്ക് ഊന്നൽ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം എൻ ഡി എ ഗവൺമെന്റിന്റെ ആദ്യ സമ്പൂർണ ബജറ്റ്

ആദായനികുതി സ്താബുകളിൽ മാറ്റമില്ല സ്വർണം രത്നം എന്നിവയുടെ ക്ടസ്റ്റ്ട്സ് തീരുവ വർദ്ധിപ്പിച്ചു പെട്രോളിനും ഡീസലീന്റും ഒരു രൂപ സെസ് രണ്ട് കോടിയിലധികം പ്രവർമാനമുള്ളവർക്ക് സർചാർജ്ജ്

ഗതാഗത മേബ്രല്യ്ക്കായി ബൃഹദ് പദ്ധതി ഒരു ലക്ഷത്തിലധിക്കം കിലോമീറ്ററിൽ പുതിയ റോഡ് നിർമ്മിക്കും ഒരു രാജ്യം ഒരു ഗ്രിഡ് പദ്ധതി നടപ്പാക്കും

മത്സൃ തൊഴിലാളികൾക്കായി പ്രധാൻമന്ത്രി മത്സൃ സമ്പദാ യോജനാ ചെറുകിട കച്ചവടക്കാർക്ക് പെൻഷൻ പദ്ധതി വിദേശനിക്ഷേപം വർദ്ധിപ്പിക്കും

ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ബൃഹദ് പദ്ധതി എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാൻ പ്രത്യേക പദ്ധതി റെയിൽവേ ആധുനീകരണത്തിന് ഊന്നൽ

അടിസ്ഥാന സൌകരൃ വികസനത്തിനും ഗ്രാമീണ മേഖലയ്ക്കും സ്ത്രീ മുന്നേറ്റത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര ധനമന്ത്രി നിർമലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഉൾക്കൊള്ളിച്ചത് അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കുമെന്ന് ശ്രീമത്ി നിർമലാ സീതാരാമൻ വൃക്തമാക്കി പരിഷ്കരണം പ്രപ്പർത്തനം പരിവർത്തനം പിന്തുടർച്ച എന്നിവയിലൂന്നിയുള്ള വികസനമാണ് എൻ ഡി എ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ശ്രീമതി നിർമലാ സീതാരാമൻ പ്പറഞ്ഞു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് ട്രീല്യൂൺ ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കും

വിദേശകടം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിലയിലെത്തി ബാങ്കുകളിലെ നിഷ്ക്രിയ ആസ്തി ഒരുലക്ഷം കോടിയായി കുറഞ്ഞുവെന്ന് ശ്രീമതി നിർമലാ സീതാരാമൻ അറിയിച്ചു ഗതാഗത പരിഷ്കരണത്തിനും വികസനത്തിനുമായി ബൃഹത് പദ്ധതിയാണ് ശ്രീമതി നിർമലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചത്

അടിസ്ഥാന സൌകര്യവും ഗതാഗത ശൃംഖലയും വർദ്ധിപ്പിക്കാൻ ഗ്യാസ് ഗ്രിഡ് വാട്ടർ ഗ്രിഡ് പ്രാദേശിക വിമാനത്താവളങ്ങൾ എന്നിവ വികസിപ്പിക്കും

എല്ലാ സംസ്ഥാനങ്ങളേയും ബന്ധിപ്പിച്ചുള്ള ഗ്രിഡ് സംവിധാനമായിരിക്കും ഇത് വൈദ്യുതി എല്ലാവർക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു രാജ്യം ഒരു ഗ്രിഡ് പദ്ധതി നടപ്പാക്കുന്നത്

മാതൃകാ വാടകൃനിയമം നടപ്പാക്കും ഗ്രാമങ്ങളേയും പാവപ്പെട്ടവരേയും കർഷകരേയും കണക്കിലെടുത്തുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് കേന്ദ്രധനമന്ത്രി പറഞ്ഞു

മത്സ്യബന്ധന തൊഴിലാളികളുടേയും മത്സ്യ കർഷകരുടേയും ഉന്നമനത്തിനായി പ്രധാനമന്ത്രി മത്സൃ സമ്പദാ യോജന നടപ്പാക്കും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അടിസ്ഥാന സൌകര്യം വികസിപ്പിക്കുകയുമാണ് ലക്ഷ്യം ശക്തമായ മത്സ്യ മാനേജ്മെന്റ് രൂപരേഖ പദ്ധതിയിലൂടെ നടപ്പാക്കും

ഭവനം വാങ്ങുന്നതിന് മൂന്നരലക്ഷം രൂപ വരെ നികുതി ഇളവ് നൽകും നിലവിൽ ഇളവ് രണ്ട് ലക്ഷം രൂപയാണ്

ആദായനികുതി ഈവർഷം മുതൽ പൂർണമായും ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ച് വിലയിരുത്തുന്ന നടപടികൾ പ്രാബല്യത്തിൽ വരും അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായനികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

ബാങ്കുകൾ വഴിയുള്ള പണ ഇടപാടുകൾ വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതായി ധനമന്ത്രി അറിയിച്ചു പ്രതിവർഷം ഒരു കോടിയിലധികം പണം പിൻവലിക്കുന്നവർക്ക് രണ്ട് ശതമാനം ടി ഡി എസ് എർപ്പെടുത്തുമെന്നും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു

ഗവൺമെന്റ് സ്വച്ച് ഭാരത് പദ്ധതി വിപുലീകരിക്കും

ഗ്രാമീണ നഗര അന്തരം കുറയ്ക്കുന്നതിനായി സാഗർമാല ഭാരത് മാല ഉഡാൻ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കും എല്ലാ ഗ്രാമങ്ങളിലും ഖരമാലിനൃ വിനിയോഗത്തിനുള്ള നടപടികൾ ലക്ഷ്യമിടുന്നതായി ധനമന്ത്രി പറഞ്ഞു

ഗാന്ധിയൻ ആശയങ്ങൾ യുവാക്കൾക്ക് കൈമാറാൻ രാഷ്ട്രീയ സ്വച്ഛതാ കേന്ദ്ര എന്ന പേരിൽ പുതിയ കേന്ദ്രം ആരംഭിക്കും ഗാന്ധി ദർശനങ്ങളും ആശയങ്ങളും ഉൾപ്പെടുത്തി വിക്കി പീഡിയയുടെ മാതൃകയിൽ ഗാന്ധി പീഡിയ ആരംഭിക്കും

രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൌകര്യം ഒരുക്കുന്ന പദ്ധതിയായ സ്റ്റഡി ഇൻ ഇന്ത്യ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കോടി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകും യുവാക്കളുടെ കായികശേഷി വർദ്ധിപ്പിക്കാൻ ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ദേശീയ കായിക വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കും പാരമ്പര്യ കലാകാരന്മാരുടെ കരകൌശല വസ്തുക്കൾക്ക് ആഗോള വിപണിയിൽ വിപണന മൂല്യം കണ്ടെത്താൻ ഒരു പദ്ധതി ബജറ്റിൽ ഉൾക്കൊളളിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഭൌമസൂചിക പദവിയും പേറ്റന്റും നൽകാൻ നടപടി സ്വീകരിക്കും

ചെറുകിട ഇടത്തരം കച്ചവടക്കാർക്ക് രണ്ട് ശതമാനം ജി എസ് ടി ഇളവ് നൽകും ഒന്നരക്കോടി രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ചില്പറ വ്യാപാരികൾക്ക് പ്രധാൻമന്ത്രി കർമ്മയോഗി മൻധൻ എന്ന പേരിൽ പ്യെൻഷൻ പദ്ധതി ആരംഭിക്കും

ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങൾ വാണിജൃവൽക്കരിക്കുകയും അതുവഴി വരുമാനം ഉണ്ടാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം സ്റ്റാർട്ട് അപ്പ് പദ്ധതികൾക്ക് ഈ ബജറ്റിൽ പ്രത്യേക പരിഗണനയാണ് നൽകിയിരിക്കുന്നത്

പൊതുസ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ റെയിൽവേ സ്റ്റേഷനുകൾ ആധുനിക വൽക്കരിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിക്ക് ഈ വർഷം ഗവൺമെന്റ് തുടക്കമിടും

സെറ്റ്ടോപ് ബോക്സ് മൊബൈൽ ഫോൺ ചാർജ്ജർ ലിതിയം അയോൺ സെൽ എന്നിവയുടെ നിർമാണ വസ്തുക്കൾക്കുള്ള കസ്റ്റംസ് തീരുവ പിൻവലിച്ചു